നാളെ ബൂത്തിലേക്ക് വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി

സ്വതന്ത്രവും സുഗമവുമായ പോളിംഗിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി രാവിലെ എട്ടു മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും കൂടുതൽ വിവിരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

ആൽവാർ ജില്ലയിലെ രാംഗഡ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ബിഎസ്പി സ്ഥാനാർത്ഥി ലക്ഷ്മണൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് മാറ്റി വച്ചിരിക്കുകയാണ്

രണ്ടു സംസ്ഥാനങ്ങളിലും രാവിലെ എട്ട് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ച് വൈകിട്ട് അഞ്ചിന് സമാപിക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

വിവിധ തലങ്ങളിലുള്ള തദ്ദേശസ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിന്റെ സാധ്യതകൾ പഠിക്കുന്നതിന് മഹാരാഷ്ട്ര ഗവണ്മെന്റ് നിയോഗിച്ച രണ്ടംഗസമിതിയുടെ അധ്യക്ഷനാണ് ശ്രീ സുധീർമുൻഗണ്ടിവർ

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധൃക്ഷനായ ബഞ്ച് കേസിൽ വാദം പൂർത്തിയാക്കി കേന്ദ്രവും കേന്ദ്ര വിജിലൻസ് കമ്മീഷനും കേസിൽ കക്ഷികളാണ്

മിഷേലിന്റെ പിന്നിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണെന്നതിന്റെ തെളിവാണിതെന്ന് വക്താവ് പറഞ്ഞു

രാജ്യത്ത് അതിർത്തിയിൽ ഭീകരർ കൊലപ്പെടുത്തിയവരേക്കാൾ കൂടുതൽ പേർ റോഡിലെ കുഴികൾമൂലമുണ്ടായ അപകടത്തിലാണ് മരിച്ചതെന്നും ഇത് അസ്വീകാര്യമാണെന്നും കോടതി വ്യക്തമാക്കി

കുപ്വാര ജീല്ലയിൽ പാക്സൈനൃം നടത്തിയ വെടിവെയ്പ്പിൽ സ്സെന്റികന് വീരമൃത്യു ഇന്ത്യൻ സേന ശക്തിയായി തിരിച്ചടിച്ചത്ായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു

ന്യൂഡൽഹിയിൽ സിവിൽ ഡിഫൻസിന്റെയും ഹോംഗാർഡിന്റെയും ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ക്രമസമാധാന പാലനത്തിന് സിവിൽ ഡിഫൻസ് മികച്ച സേവനമാണ് കാഴ്ച വയ്ക്കുന്നത് രാജ്യത്തെ ഏതു സാഹചര്യത്തിലും സിവിൽ പ്രതിരോധ സേനയാണ് ആദ്യം എത്തുന്നതെന്ന് രാജ്നാഥ്സിംഗ് പറഞ്ഞു

ന്യൂഡൽഹിയിലെ സൻസദ് ഭവൻ പുൽത്തിക്ടിയിൽ അംബേദ്ക്കറിന്റെ പ്രതിമക്ക് മുൻപിൽ രാഷ്ട്രപതി രാക്കാ്ഥ് കോവിന്ദ് പുഷ്പാർച്ചന നടത്തി

ന്യൂഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗമാണ് തീരുമാനമെടുത്തത് കൂടുതൽ വിവിരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

മൂന്നു സംസ്ഥാനങ്ങൾ നല്കിയ അപേക്ഷ കൂടി പരിഗണിച്ചാണ് ധനസഹായത്തിൽ കേന്ദ്രം തീരുമാനമെടുത്തത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

സാമൂഹ്യ വിരുദ്ധർക്കെതിരെയാണ് ശബരിമലയിലും പരിസരത്തും പോലീസ് നടപടി എടുക്കുന്നതെന്നും ഭക്തർക്ക് ഒരു വിലക്കുമില്ലെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി

പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്

സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ വിധിപറയാൻ ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി

വൈകുന്നേരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യാന്തര ചലചിത്രോൽസവം ഉദ്ഘാടനം ചെയ്യും

കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി

വാർത്തകൾ തെറ്റായ പ്രചരിപ്പിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ സംഘടനകളെ പുറത്താക്കാൻ തീരുമാനിച്ചതെന്ന് പാകിസ്ഥാൻ മനുഷ്യാവകാശ മന്ത്രി ഷിറിൻ മസാരി ട്വീറ്റ് ചെയ്തു

ടോസ് നേടി ബാറ്റിംങ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് രണ്ടാം ഓവറിൽ ആദ്യ വിക്കറ്റ് നഷ്ടമായി

നാല് ടെസ്റ്റ് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്

കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വ്യവസായ നയ പ്രോത്സാഹന വകുപ്പാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

സാങ്കേതിക വിദ്യകളുടെ മുന്നേറ്റത്തിന്റെ കാലത്ത് ഗവൺമെന്റ് ഇടപടലിനെക്കാൾ ഈ മേഖലയുടെ സ്വയം നിയന്ത്രണമാണ് ഉണ്ടാകേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി